ഇന്ത്യ ചൈനാ നിയന്ത്രണരേഖയിൽ സ്ഥിതി പൂർണ്ണമായും സമാധാനപരമാണെന്ന് കരസേനാ മേധാവി

ജമ്മു കാശ്മീരിലെ കുൽഗാമിൽ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ രണ്ട് ഭീകരർ കൊല്ലപ്പെട്ടു ഒട്ടേറെ ആയൂധങ്ങൾ കണ്ടെടുത്തു

കോവിഡ് പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിമാരുമായി പ്രധാനമന്ത്രി നടത്തുന്ന ആറാമത്തെ വീഡിയോ കോൺഫറൻസിംഗാണിത്

ഡൽഹിയിലും തമിഴ്നാട്ടിലും കോവിഡ് ബാധിതരുടെ എണ്ണം വർദ്ധിച്ച തോതിൽ തുടരുന്നു

പാകിസ്ഥാനിലും മെക്സികോയിലുമാണ് പുതിയ കേസുകൾ കൂടുതലായി റിപ്പോർട്ട് ചെയ്തത്

കോവിഡ് പ്രതിരോധ രംഗങ്ങളിൽ വികസ്വര രാജൃങ്ങൾക്ക് അർഹിക്കുന്ന പരിഗണന നൽകണം

വികസ്വര രാജ്യങ്ങളിൽ കോവിഡ് രോഗബാധ വർധിക്കുന്ന സാഹചര്യത്തിൽ ഗർഭിണികളുടെയും ശിശുക്കളുടെയും ആരോഗ്യത്തിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിക്കണം

സ്ത്രീകൾ കുട്ടികൾ കൌമാരക്കാർ എന്നിവരിൽ കോവിഡ് ഉണ്ടാക്കാവുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ലോകാരോഗ്യ സംഘടന തികഞ്ഞ ജാഗ്രതയിലാണെന്ന് സെക്രട്ടറി ജനറൽ പറഞ്ഞു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

സുരക്ഷാ സേനയും പോലീസും നടത്തിയ സംയുക്ത തെരച്ചിലിനെ തുടർന്നാണ് വെടി വയ്പുണ്ടായതെന്ന് പോലീസ് സീനിയർ സൂപ്രണ്ട് ഗുർവിന്ദർപാൽ സിംഗ് അറിയിച്ചു

ജൂലായ് ഒന്നിന് തുറക്കാനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നതെങ്കിലും കോവിഡ് രോഗബാധ വർധിച്ച സാഹചര്യത്തിലാണ് തീരുമാനം മാറ്റിയത്

കേന്ദ്ര സർക്കാരിന്റെയും യു ജി

ബി എസ് ഇ ചില വിഷയങ്ങളിൽ അടുത്ത മാസം പരീക്ഷ നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്

കോവിഡ് രോഗ ലക്ഷണങ്ങളില്ലാത്ത ജീവനക്കാർക്കും സന്ദർശകർക്കും മാത്രമാണ് ഓഫീസുകളിൽ പ്രവ്യേശനം അനുവദിക്കുക

സ്മീമൂഹിക അകലം കൃത്യമായി പാലിക്കുന്നുവെന്ന് ഉറപ്പാക്കാൻ പ്രി നിൽക്കുന്നതിന് പ്രത്യേക അടയാളങ്ങൾ രേഖപ്പെടുത്ത് ്ലൂമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് കോവിഡ് പ്രതിരോധ മാർഗ്ഗങ്ങൾ പ്രപ്പാദിക്കുന്ന പോസ്റ്ററുകളും ദൃശ്യ ശ്രവൃ മാർഗ്ഗങ്ങളും എല്ലാ സമയ്ക്കും പ്രദർശിപ്പിക്കാനും നിർദ്ദേശിച്ചിട്ടുണ്ട്

നേപ്പാളുമായും ശക്തമായ ബന്ധമാണുള്ളതെന്നും കരസേനാ മേധാവി പറഞ്ഞു

പ്രാദേശികതലത്തിൽ ഇരുവിഭാഗത്തിലെയും സൈനിക കമാൻഡർമാരുമായി നിരന്തര ചർച്ചകൾ നടക്കാറുണ്ട്

സാംസ്കാരികപരവും ചരിത്രപരവുമായി ദീർഘകാല ബന്ധമാണ് നേപ്പാളുമായുള്ളത് ജനങ്ങളുമായുള്ള ബന്ധവും ശക്തമാണെന്ന് കരസേനാ മേധാവി പറഞ്ഞു

കോവിഡ് മാർഗ്ഗ പ്പൂർത്തിർദ്ദേശങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ടാണ് പരേഡും ചട്ടങ്ടുക്ളും സംഘടിപ്പിച്ചതെന്ന് ഇന്ത്യൻ മിലിറ്ററി അക്കാദമി അറിയ്കിച്ചു് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ദക്ഷിണ നാവിക സേന മേധാവി വൈസ് അഡ്മിറൽ അനിൽ കുമാർ ചാവ്ല പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ചു

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി എൻ